ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗൃയോജനക്ക് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും

ഗണേശ വിഗ്രഹങ്ങളുടെ നിമജ്ജനത്തോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവത്തിന് ഇന്ന് സമാപനം

പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ മാലിദ്വീപ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്

ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് സൂപ്പർഫോറിൽ ഇന്ത്യ പാക് പോരാട്ടം ഇന്ന് ദുബായിൽ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ലിഖിത

രാജ്യത്ത് എവിടെനിന്നും ഗുണഭോക്താവിന് പദ്ധതി പ്രയോജനപ്പെടുത്താനാവും

ആരോഗ്യ രംഗത്ത് പാവപ്പെട്ടവർക്ക് പരിരക്ഷ ഉറപ്പാക്കുകയും സാമ്പത്തിക ഭാരം ലഘൂകരിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രയത്നങ്ങളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് നേരത്തെ മുഖ്യമന്ത്രി ടിറ്ററിൽ അറിയിച്ചു

ഛത്തീസ്ഗഡിലെ ചമ്പാ ജില്ലയിലുള്ള ബിലാസ്പൂർ പത്രാപലി പാതയുടെയും ബിലാസ്പൂർ അനുസ്പ്പൂർ മൂന്നാമത് നാല് വരി റെയിവേ പാതയുടെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കർഷകസമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു

തെരെഞ്ഞെടുപ്പുകൾ ജമ്മൂകൾമീരിലെ ജനങ്ങളുമായി സംവദിക്കുന്നതിന് രാഷ്ട്രീയപാർട്ടിക്ൾക്ക് ലഭിക്കുന്ന അവസരമാണ് ഒരുക്കുന്നതെന്ന് അദ്ദേഹം ്പറഞ്ഞു

ടി റിട്ടേൺ ഫോം അടുത്ത ആറുമാസത്തിനുള്ളിൽ പുറത്തിറക്കാൻ ബംഗ്ലളൂരുവിൽ ചേർന്ന മന്ത്രിമാരുടെ ജി

വ്യാപാരികൾക്ക് ഗുണകരമാകുംവിധമായിരിക്കും പുതിയ ഫോമെന്ന് മന്ത്രിതല സംഘത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി വ്യക്തമാക്കി

അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി മാസത്തോടെ ഗോരഖ്പൂർ എയിംസിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗം പ്രവർത്തനം ആരംഭിക്കും

ബി

എസ് കോഴ്സിൽ പ്രവേശനം നേടാം

പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും തീവ്രവാദ സംഘടനകളെ പാക് മണ്ണിൽ നിന്നും തുടച്ചു നീക്കണമെന്നും അദ്ദേഹം ആവശൃപ്പെട്ടു

ഇതുസംബന്ധിച്ച് ലോക ബാങ്ക് സംഘം ചീഫ് സെക്രട്ടറി ടോം ജോസ് മുൻപാകെ റിപ്പോർട്ട് അവതരിപ്പിച്ചു

ജലവിഭവം പൊതുകെട്ടിടങ്ങൾ ആരോഗ്യം പരിസ്ഥിതി സാംസ ്കാരിക പൈതൃകം എന്നിവ പുനസ്ഥാപിക്കുന്നതിനാവശ്യമായ തുകയും വിലയിരുത്തിയിട്ടുണ്ട് റിപ്പോർട്ടിൽ ചീഫ് സെക്രട്ടറി ഭേദഗതികൾ നിർദ്ദേശിച്ചു ഇതുകൂടി ഉൾപ്പെടുത്തി ഒക്ടോബർ ഒന്നിന് അന്തിമ റിപ്പോർട്ട് നൽകും ലോകബാങ്കിന്റെയും എ ഡി

സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന നിമജ്ജന ഘോഷയാത്രയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി മഹാരാഷ്ട്രയിലെ മുംബൈ താനെ പൂനെ എന്നിവടങ്ങളിൽ എല്ലാ വർഷത്തെയും പോലെ ഗണേശോത്സവത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് സജീകരിച്ചിട്ടുള്ളത്

പ്രതിപക്ഷത്തിന്റെയും വിദേശ ശക്തികളുടെയും എതിർപ്പിനിടെയാണ് മൂന്നാമത് പ്രസിഡറ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രസിഡന്റ് അബ്ദുള്ളയമീൻ ഇബ്രാഹിം മുഹമ്മദ് സെലീഹ് എന്നിവരാണ് പ്രധാനസ്ഥാനാർത്ഥികൾ

തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലം നാളെ അറിയാം

ദുബായിലാണ് മത്സരം സൂപ്പർ ഫോറിലെ ആദ്യമത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ തകർപ്പൻ ജയം നേടിയിരുന്നു ഇന്ന് അബുദാബിയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ളാദേശിനെയും നേരിടും

അഞ്ച് വിക്കറ്റുകൾക്കാണ് ഇന്ത്യൻ വനിതകളുടെ ജയം

വെങ്കലത്തിനായി സച്ചിൻ റാത്തിയും സജ്ജീത്തും ഇന്ന് മത്സരത്തിനിറങ്ങും

സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ വെടിവെയ്പ്പില്ലാണ് സംഭവം

ഭീകരർ നുഴഞ്ഞ് കയറി പ്രദേശത്ത് ഒളിച്ചിരിക്കുകൃതാണെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷസേന നടത്തിയ ഭ്രീകൃത്വിരുദ്ധ ഓപ്പറേഷനിലാണ് ഒൻപത് പേരെ വധിക്കാൻ സാധ്രിച്ചത്

നാല് ദിവസം നീണ്ടു നില്ക്കുന്ന ഫെസ്റ്റിവെൽ കാണാൻ വിദേശികളടക്കം ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികളാണ് സംസ്ഥാനത്ത് എത്തുന്നത് ഫെസ്റ്റിവെലിനോടനുബന്ധിച്ച് പ്രദർശന വിപണനമേളകളും സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാരൂപങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്